പുരോഗമിക്കുന്നു നിയന്ത്രണരേഖയിൽ സംഘർഷം ലഘൂകരിക്കാൻ തീരുമാനം

ലോകത്തിൽ ഏറ്റ്പ്പും കുറഞ്ഞ കോവിഡ് സ്ഥിരീകരണനിരക്ക് ഇന്ത്യിയിൽ

സ്ഥിരീകരിച്ചു

സർവ്വകലാശാല പരീക്ഷകൾ നടത്തുന്നത് സംബന്ധിച്ച് യുജിസി പുതുക്കിയ മാർഗ്ഗനിർദ്ദേശം പുറപ്പെടുവിച്ചു

ഞായറാഴ്ച വൈകുന്നേരം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദൊവലും ചൈനീസ് വിദേശകാര്യ മന്ത്രി വാങ് യി യും തമ്മിൽ നടന്ന ചർച്ചയിലാണ് സേനാ പിൻമാറ്റം തീരുമാനമായത് യഥാർത്ഥ നിയന്ത്രണരേഖയിൽ സംഘർഷം ലഘൂകരിക്കാനും തീരുമാനമായിട്ടുണ്ട് ഇന്ത്യ ചൈനാ അതിർത്തിയിൽ സമാധാനം പുനസ്ഥാപിക്കാനും ഉഭയകക്ഷി ബന്ധങ്ങളിൽ പുരോഗതി കൈവരിക്കുന്നതിനും ഇരുപക്ഷവും ധാരണയായിട്ടുണ്ട് ഇതിനായി എത്രയും പെട്ടെന്ന് സേനാ പിൻമാറ്റം പൂർത്തിയാക്കേണ്ടതുണ്ടെന്ന് ഇരുപക്ഷവും വിലയിരുത്തി പൂർത്തിയാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്

പത്ത് ലക്ഷം പേരെ പരിശോധിക്കുമ്പോൾ ലോകത്തിൽ ഏറ്റവും കുറഞ്ഞ കോവിഡ് സ്ഥിരീകരണ നിരക്ക് ഇന്ത്യയിലെന്ന് ആരോഗ്യ മന്ത്രാലയം

ഏറ്റവും കുറഞ്ഞ മരണ നിരക്കും ഇന്ത്യയിലാണ്

കോവിഡ് രോഗികളെ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിനായി ആശുപത്രി അടിസ്ഥാന സൌകര്യങ്ങൾ ഇന്ത്യ വർദ്ധിപ്പിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇത് സംബന്ധിച്ച് ഐ സി എം

സിനിമ ചിത്രീകരണത്തിനുള്ള മാർഗ്ഗു നിർദ്ദേശം ഗവൺമെന്റ് തയ്യാറാക്കി വരുന്നതായി അദ്ദേഹം അറിയിച്ചു സിനിമാ സീരിയൽ നിർമ്മാണത്തിനായി ചില ഇളവുകൾ ഉടൻ പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു

ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി മൻസുഖ് മാണ്ഡവൃയുടെ അധൃക്ഷതയിൽ ഉന്നത തലയോഗം ചേർന്നു ലൈറ്റ് ഹൌസുകൾക്ക് സമീപമുള്ള പ്രദേശങ്ങളുടെ വികസനത്തിനും അവയുടെ ചരിത്രത്തെക്കുറിച്ചുള്ള അറിവ് പകരാനും ഇത് സഹായിക്കുമെന്ന് മന്ത്രി പറഞ്ഞു

വിനോദ സഞ്ചാരികൾക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റുകൾ നിർബന്ധമാണ്

ഇന്നലെ ചേർന്ന ഉന്നതതല യോഗത്തിൽ ലഫ്റ്റനന്റ് ഗവർണർ ഇക്കാര്യം നിർദ്ദേശിച്ചതായി അദ്ദേഹം ടിറ്ററിൽ കുറിച്ചു

നയതന്ത പരിരക്ഷയുള്ള ബാഗേജിലൂടെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം വഴി സ്വർണ്ണം കടത്തിയ കേസിൽ ഉൾപ്പെട്ടവരുമായി ബന്ധമുണ്ടെന്ന് ആരോപണമുയർന്നതിനെ തുടർന്നാണ് നടപടി

ടി സെക്രട്ടറി കൂടിയായ്ക്കിട്ടുന്ന ് എം ശിവശങ്കറിന് പകരം പുതിയ ഐ ടി സെക്രട്ടറിയ്ായി മുഹമ്മദ് വൈ

സംസ്ഥാനത്ത് സ്ഥിതി ഗുരുതരമായി വരികയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു

ഒരു സി ഐ എസ് എഫ് ജവാൻ ഒരു ഡി

ഇന്ന് രാവിലെയാണ് മരണം സംഭവിച്ചത്

ജി

സെപ്തംബറിൽ അവ്സാനപാദ പരീക്ഷകൾ നടത്തുന്നതിന് മുൻഗണന നൽകണം

നേരിട്ടോ ഓൺലൈനായോ പരീക്ഷ നടത്താവുന്നതാണ്

കസ്റ്റഡി മരണത്തിൽ മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബഞ്ച് ഇടപെടുകയും മജിസ്ട്രേറ്റ്തല അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിരുന്നു തെളിവുകൾ നഷ്ടപ്പെടാതിരിക്കാൻ സിബിഐ കേസ് ഏറ്റെടുക്കും വരെ സി

ഐ

യോട് അന്വേഷണം നടത്താൻ കോടതി നിർദ്ദേശിച്ചിരുന്നു

ആക്രമണത്തിൽ ഉൾപ്പെട്ട തീവ്രവാദികൾക്ക് യാത്രാ സൌകര്യം ഒരുക്കിയതുൾപ്പെടെ പിന്തുണ നൽകിയ ആളെയാണ് അറസ്റ്റ് ചെയ്തത് ജമ്മുവിലെ എൻ

കേസിൽ എൻ ഐ

കഴിഞ്ഞ ഫെബ്രുവരിയിൽ പുൽവാമയിൽ നടന്ന ഐ

എഫ് ഉദ്യോഗസ്ഥർ വീരമൃത്യു വരിക്കുകയായിരുന്നു

ഡൽഹിയിൽ ഹിട്ടുന്ന് യോഗത്തിൽ ഓർഗനൈസേഷൻ ഡയറക്ടർ ലഫ്റ്റന്റ്റ് ജ്യറിൽ ഹർപാൽ സിംഗും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു അതിർത്തി പ്രദേശങ്ങളിൽ റോഡുകൾ നിർമ്മിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് ബോർഡർ റോഡ് ഓർഗനൈസേഷനാണ്